കെ ഉഷ അന്തരിച്ചു വാർത്തകൾ വിശദമായി നിർമ്മിതബുദ്ധി ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കു ന്നുവെന്നും നിർമ്മിതബുദ്ധിയുടെ ആയുധവത്ക്കരണത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുന്നുവെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഇന്ത്യയെ നിർമ്മിത ബുദ്ധിയുടെ ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിന് രാജ്യത്തെ ജനങ്ങൾ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാൻ വൻ പരിശ്രമമാണ് റെയ്സ് ഉച്ചകോടി നടത്തുന്നത് ഈ മഹാമാരി കാലത്ത് ഡിജിറ്റൽ തയ്യാറെടുപ്പുകൾ എത്രമാത്രം സഹായകരമായെന്ന് രാജ്യം തെളിയിച്ചതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദേദ രാജ്യത്തെ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗ നിർദ്ദേശം പുറത്തിറക്കി

സ്കൂളുകളിൽ ശാരീരിക അകലം പാലിക്കുകയും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കുകയും വേണം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സ്വന്തം നിലയിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കാമെന്നും കേന്ദ്രം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ദേദ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി കൂടുതൽ പേർ രോഗമുക്തരായി

പരിശോധന കുറഞ്ഞതാണ് രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് റിപ്പോർട്ട്

രുമ ആലപ്പുഴയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

പുതിയാപ്പ ചോമ്പാല ഹാർബറുകൾ അടച്ചിട്ടതിനാൽ കൊയിലാണ്ടി ഹാർബറിലേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ എത്തുന്നതിനാൽ രോഗവ്യാപന സാധ്യതയുണ്ടെന്ന് മുൻസിപ്പൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ഹാർബർ അടച്ചത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അഴിയൂർ മാവൂർ പെരുവയൽ ഗ്രാമപഞ്ചായത്തുകൾ പൂർണമായി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു രുര കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കോഴിക്കോട് പാളയം മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രത്യേക സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നോഡൽ ഓഫിസർ ഉത്തരവിട്ടു കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയ സർട്ടിഫിക്കറ്റുള്ള കച്ചവടക്കാർ തൊഴിലാളികൾ പോർട്ടർമാർ എന്നിവർക്ക് മാത്രമാണ് മാർക്കറ്റിൽ പ്രവേശനം അനുവദിക്കുക നടപ്പു വർഷത്തെ ജി എസ് ടി നഷ്ടപരിഹാര സെസ്സിൽ നിന്നും ഇരുപതിനായിരം കോടിയോളം രൂപ സംസ്ഥാനങ്ങൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ അറിയിച്ചു

എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ജി എസ്

അടുത്ത ജനുവരി ഒന്നുമുതൽ അഞ്ചുകോടി രൂപയിൽ താഴെ വിറ്റുവരവുള്ള ചെറുകിട നികുതി ദായകർ മാസംതോറും ജി

ടി റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതില്ലെന്നും മൂന്നു മാസത്തിലൊരിക്കൽ സമർപ്പിച്ചാൽ മതിയെന്നും റവന്യൂ സെക്രട്ടറി അജയ്ഭൂഷൺ പാണ്ഡെ അറിയിച്ചു

ടി

ജനതാ സർവീസ് എന്ന് പേരിട്ടിരിക്കുന്ന കെ

സിയുടെ പുതിയ അൺലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസുകളുടേയും പാർസൽ സർവീസായ ലോജിസ്റ്റിക്സിന്റേയും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും രുമ കേരളത്തിലെ എല്ലാ മേഖലകളേയും അന്തർസംസ്ഥാന പ്രസരണ ശ്യംഖലയുടെ ഭാഗമാക്കാനായത് വലിയ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വൈദ്യുതി മേഖലയിലെ നാല് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നാല് പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും പുതിയ രണ്ട് ഓഫീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

വി സബ്സ്റ്റേഷൻ അങ്കമാലി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ പുതിയ കെട്ടിടം കാസർകോഡ് ഭീമനടി കൊല്ലം വെളിയം ഇലക്ട്രിക്കൽ സെക്ഷനുകളുടെ പുതിയ കെട്ടിടങ്ങൾ എന്നിവ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ഇടുക്കി നെടുങ്കണ്ടം ട്രാൻസ്മിഷൻ ഡിവിഷൻ പാലക്കാട് ലക്കിടി ഇലക്ട്രിക്കൽ സെക്ഷൻ എന്നിവയാണ് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഓഫീസുകൾ ദേദ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് കെ

കൊച്ചിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അന്ത്യം

അഭിഭാഷകരുടെ ഇടയിൽ നിന്ന് ഹൈക്കോടതി ജുഡീഷ്യറിയിൽ വരികയും ചീഫ് ജസ്റ്റിസ് ആവുകയും ചെയ്ത ആദ്യ വനിതയാണ് ജസ്റ്റിസ് കെ

നീതിന്യായ മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ ജഡ്ജിയും അഭിഭാഷകയുമായിരുന്നു ജസ്റ്റിസ് കെ കെ ഉഷ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രമേ കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത് നിര്യാതനായി

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിന് മികച്ച വിജയം

രുമ സ്വർണക്കടത്ത് കേസിലെ എഫ് ഐ ആറിൽ പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ വിചാരണ കോടതി എൻ

ഇല്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടിവരുമെന്നും കൊച്ചിയിലെ എൻ

സ്വർണക്കടത്തിലൂടെ ലാഭമുണ്ടാക്കിയവരുടെ പട്ടിക സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു ദേദ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി

വി ജോസിനെ സി ബി

ലൈഫ് മിഷനിലെ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുകയുണ്ടായി

നേരത്തെ യൂണിടാക് എം ഡി ജി സന്തോഷ് ഈപ്പനെയും ഭാര്യയെയും ലൈഫ് മിഷൻ തൃശൂർ ജില്ലാ കോ ഓർഡിനേറ്റർ ലിൻസ് ഡേവിഡിനെയും സി

ഐ ചോദ്യം ചെയ്തിരുന്നു ദ്ദേ ലഹരി മരുന്ന് കടത്തു കേസിലെ പ്രതിയ്ക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും

നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നത് രേര ടൈറ്റാനിയം കേസ് സി

ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ടൈറ്റാനിയത്തിലെ തൊഴിലാളി യൂണിയൻ നേതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന അഴിമതി അന്വേഷിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം കേസ് ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു രദ് സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരം നിർത്തുമെന്ന് യു ഡി എഫ് നേതാക്കളാരും പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിംലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി

ആൾക്കൂട്ടസമരം നിർത്തുമെന്നാണ് പറഞ്ഞത്